ഗവൺമെന്റ് ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്ത ന് മന്ത്രി ഇ

തൃശൂരിൽ രാജ്യാന്തര നാടകോത്സവം മന്ത്രി എ

സമർ രീതികളിൽ സമീപകാലത്തുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെന്റ്രി കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു